പ്രവാസികളെ രാജ്യത്ത് തിരികെ എത്തിക്കാനുള്ള വന്ദേ ഭാരത് ദൌതൃം തുടരുന്നു കേരളത്തിലേക്ക് ഇന്ന് രണ്ട് വിമാനങ്ങൾ

സംസ്ഥാനത്ത് വ്യവസായശാലകളിലു് രാസവസ്തുശാലകളിലും സുർക്ഷ് വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി

രോഗവ്യാപനം ഉയരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗൃ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ മുംബൈ സന്ദർശിച്ചു

നഷ്ടപരിഹാരമായി കെട്ടിവയ്ക്കാൻ എൽ ജി പോളിമേഴ്സ് കമ്പനിയോട് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു

കേരളത്തിലേക്ക് ഇന്ന് രണ്ട് വിമാനങ്ങളാണ് ബഹ്റിനിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേയ്ക്കും റിയാദിൽ നിന്ന് കരിപ്പൂരേയ്ക്കുമാണ് വിമാനങ്ങൾ

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു

ജമ്മു കശ്മീരിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളാണ് എല്ലാവരും

തിരികെയെത്തിയവരെ സ്വാഗതം ചെയ്യുന്നതായി വിദേശ കാര്യ മന്ത്രി എസ് ജയശങ്കർ ട്വീറ്റ് ചെയ്തു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ട്രിച്ചി വാർത്താവിഭാഗം മേധാവി

പരമേശ്വരൻ

ഇന്നലെ മാലിയിൽ എത്തിയ ഇന്ത്യൻ നാവിക കപ്പലായ ഐ

നാവികസേനയുടെ മറ്റൊരു കപ്പലായ ഐ

കോവിഡ് അവലോകന യോഗത്തിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത്

ബി എസ്

കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്കാണ് ഇക്കാര്യം അറിയിച്ചത്

നഗരത്തിൽ കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം കൊറോണ വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പുറപ്പെടുവിച്ച മാർഗ്ഗ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത് സംബന്ധിച്ചും സംഘം വിലയിരുത്തും

വെങ്കട്ടപുരം ഗ്രാമത്തിൽ ഇന്നലെയുണ്ടായ വിഷവാതകച്ചോർച്ച സംബന്ധിച്ച അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ അന്വേഷണ സമിതിയെ നിയോഗിച്ചു

ജി പോളിമേഴ്സ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കെമിക്കൽ പ്ലാന്റിലാണ് വാതക ചോർച്ച ഉണ്ടായത്

ഉത്തരവും പുറപ്പെടുവിക്കുന്നില്ലെന്നും സാമൂഹിക അകലം പാലിക്കുന്നതിന് സംസ്ഥാനങ്ങൾ മദ്യം ഓൺലൈനായി വീട്ടിലെത്തിക്കുന്നത് പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു

റെഡ് ക്രോസ് സ്ഥാപകനായ ഹെന്റി ഡുനന്റിന്റെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത്